എം

പോർട്ടബിൽ ഓക്സിജൻ കോൺസൻട്രേറ്ററുകൾ വാങ്ങു ന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അനുമതി നൽകി

എം കെയർ ഫണ്ട് ഉപയോഗിച്ച് ഒരു ലക്ഷം പോർട്ടബിൽ ഓക്സിജൻ കോൺസൻട്രേറ്ററുകൾ വാങ്ങുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകി രാജ്യത്ത് മെഡിക്കൽ ഓക്സിജൻ ലഭൃത ഉറപ്പുവരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം

വോയ്സ് ഓക്സിജൻ കോൺസൻട്ട്രേറ്റുകൾ രാജ്യത്ത് എത്രയും വേഗം സംഭരിക്കണമെന്നുക് സ്ംസ്ഥാനങ്ങൾക്ക് ഇവ വിതരണം ചെയ്യണമെന്നും പ്രധാന്ധിമുന്തി നരേന്ദ്രമോദി ഉന്നതതല യോഗത്തിൽ നിർദ്ദേശീച്ചു പി എം

എസ്

എസ്

ഡി

എസ്

പ്ലാന്റുകളിൽ നിന്ന് ആശുപത്രികളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള തടസ്സം പരിഹരിക്കാനും അവശ്യ സ്ഥലങ്ങളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താനും പോർട്ടബിൽ ഓക്സിജൻ കോൺസൻട്രേറ്ററിലൂടെ സാധിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവൃയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്

ഡി

അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഇവ പ്രവർത്തന സജ്ജമാകും

രാജ്യത്ത് കോവിഡ് വ്യാപനം ആരംഭിച്ചതു മുതലുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധയും മരണനിരക്കുമാണിത്

കോവിൻ പോർട്ടൽ ആരോഗൃസേതു ഉമാംഗ് ആപ്പുകൾ എന്നിവയിലൂടെ ഇതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്

വാക്സിന്റെ ആകെ ഉത്പാദനത്തിന്റെ പകുതി കേന്ദ്രസർക്കാരിനും ബാക്കിയുള്ള പകുതി സംസ്ഥാന സർക്കാരുകൾക്കും പൊതുവിപണിയിലും ലഭൃമാക്കാനാണ് മരുന്ന് കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വാക്സിനേഷൻ നൽകില്ല

എല്ലാവർക്കും സൌജനൃ വാക്സിൻ ഉറപ്പാക്കാനാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സൌജനൃമായി വാക്സിൻ നൽകാൻ കഴിയുന്ന വിധത്തിൽ വാക്സിൻ നയം ഭേദഗതി ചെയ്യാൻ കേന്ദ്രത്തോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടാനും മന്ത്രിസഭാ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു കേന്ദ്രത്തിന് ലഭ്യമാകുന്ന അതേ വിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കാനും കേന്ദ്രത്തോട് ആവശ്യപ്പെടും

ഇ

മനുഷ്യ സ്നേഹം കണക്കിലെടുത്താണ് നടപടിയെന്നും സംസ്ഥാനങ്ങൾക്ക് കോടികൾ ലാഭിക്കാനാകുമെന്നും ക്ടൂടുതൽ പേർക്ക് വാക്സിൻ നൽകാൻ തീരുമാനം ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

അംഗീകരിക്കപ്പെട്ട ആഗോള ഏജൻസികളിൽ നിന്നും വിവിധ തരം ടെസ്റ്റിങ്ങ് കിറ്റുകൾ വാങ്ങുന്നതിനുള്ള നിബന്ധനകളിൽ ഇളവു വരുത്താനാണ് ഐ

എം ആർ ആലോചിക്കുന്നത്

ഞായറാഴ്ച വോട്ടെണ്ണൽ നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വിശദാംശങ്ങളിലേക്ക് വോയിസ് അസം തമിഴ്നാട് പശ്ചിമബംഗാൾ കേരളം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും അടുത്തമാസം രണ്ടിന് വോട്ടെണ്ണൽ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോവിഡ് നിയന്ത്രണങ്ങൾ കർശന മാക്കിയത്

സി ആർ റാപ്പിഡ്ഡ് ആന്റിജൻ ടെസ്റ്റ് പരിശോധനാ ഫലം കൂടാതെ സ്ഥാന്റ്റിർത്ഥികൾ പോളിങ് ഏജന്റുമാർ എന്നിവർക്ക് ഹാട്ട്രീനുള്ളിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് തെരഞ്ഞെട്ടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

വ്യോപ്ട്ടണ്ണൽ കേന്ദ്രങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശ്രനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട് കൌണ്ടിംഗ് സെന്ററുകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി തദ്ദേശ ആരോഗ്യ അധികാരികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിച്ചേർത്തു വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്നാദ പ്രകടനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അവശ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാവും തുറക്കുക തിങ്കളാഴ്ച പുലർച്ചെ ആറ് വരെയാണ് ലോക്ഡൌൺ

കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായും അസം മുഖ്യമന്ത്രിയുമായി നടത്തിയ സംഭാഷണത്തിൽ സംസ്ഥാനത്തിന്ട് പ്രില്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു

നിരവധി പേർക്ക് പരിക്കേറ്റു

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് സൺറൈസസ് ഹൈദരാബാദ് മത്സരം ആരംഭിച്ചു ടോസ് നേടിയ ഹൈദരാബാദ് ബാറ്റിംഗ് തെരെഞ്ഞെടുത്തു ഡൽഹി അരുൺജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സൂരം

കെ സർക്കാർ തീരുമാനിച്ചത്